പകർച്ചവ്യാധി നിയന്ത്രണം ലക്ഷ്യമിട്ട് ആരോഗ്യ ജാഗ്രതാ പരിപാ ടിക്ക് നാളെ തുടക്കമാകും

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജന മഹായാത്ര ഇന്ന് കാസർകോട്ടുനിന്ന് ആരംഭിക്കും അമേരിക്കയിലെ വ്യാജ സർവ്വകലാശാലയിൽ തട്ടിപ്പിനിരയായ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ നടപടി ആരംഭിച്ചതായി വിദേ ശകാര്യ മന്ത്രാലയം

വയനാട് കുട്ടനാട് പാക്കേജുകൾ പുഴ പുനരുജ്ജീവനം തീരദേശ സംരക്ഷണം തുടങ്ങിയവ ഇവ യിൽ ഉൾപ്പെടുന്നു പുനലൂർ റവന്യൂ ഡിവിഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിന്റെ പുനർനിർമാണത്തോടൊപ്പം ബേക്കൽ കോവളം ജലപാത വികസനവും പുതിയ റെയിൽപാതയും ഗെയിൽ പൈപ്പ്ലൈനും വിമാനത്താവള വികസനവും ഇലക്ട്രിക് ബസ്സുകളുടെ വ്യാപനവും ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറ ഞ്ഞു പകർച്ചവ്യാധി നിയന്ത്രണം ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ആരോ ഗൃ ജാഗ്രതാ പരിപാടി നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ വർഷം ആരോഗ്യ ജാഗ്രതയിലൂടെ പനിയും പകർച്ചവ്യാധി മര ണങ്ങളും നിയന്ത്രിക്കാനായെന്ന് ഇക്കാര്യം അറിയിച്ച മന്ത്രി കെ

ശൈലജ പറഞ്ഞു ഓഖി പ്രളയം നിപ സാഹചര്യ ങ്ങൾ വിജയകരമായി നേരിടാനും കഴിഞ്ഞു ലോകത്ത് പത്തിനം രോഗാണുക്കളുടെ സാന്നിധ്യം പുതിയതായി കണ്ടെത്തിയ രാജ്യങ്ങളുമായി കേരളത്തിന് ബന്ധ മുണ്ട് ആ സാഹചര്യം നിരീക്ഷിക്കാൻ മെഡിക്കൽ കോളേജു കളിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയതായി മന്ത്രി പറ ഞ്ഞു

കോഴിക്കോട് മെഡിക്കൽ കോളേ ജിൽ ലെവൽ ദ ലാബ് ആരംഭിക്കാൻ അനുമതി ലഭിച്ചിട്ടു ണ്ടെന്നും മന്ത്രി വെളിപ്പെടുത്തി വിവിധ തൊഴിൽ മേഖലകൾക്ക് ആവശ്യമായ വൈവിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ നൈപുണ്യ വികസന പദ്ധതികളിൽ കാലികമായ മാറ്റം വരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു ഉന്നത് വിദ്യാഭ്യാസ വകുപ്പ് അസാപിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച കമ്യൂണിറ്റി സ്കിൽ പാർക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം കുളക്കടയിൽ നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി നൈപുണ്യ വികസന സേവനങ്ങൾ പൊതുസമൂഹത്തിന് കൂടി ലഭ്യമാക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്

സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കു ന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു കുട്ടനാട്ടിൽ അടിയന്തിര പരി ഗണന നൽകേണ്ടത് നാനൂറോളം പാടശേഖരങ്ങളുടെ പുറം ബണ്ട് നിർമ്മാണമാണ്

പുറംബണ്ട് നിർമ്മാണത്തിന് പകുതി തുക കേന്ദ്രസഹായമായി നൽകാ മെന്ന് അറിയിച്ചിരുന്നെങ്കിലും സംസ്ഥാനം അതിന് തയ്യാറാ യില്ലെന്ന് കൊടിക്കുന്നിൽ കുറ്റപ്പെടുത്തി

വൈകിട്ട് മൂന്നിന് പ്രവർത്തക സമിതി അംഗം എ

ആന്റണി യാത്ര ഉദ്ഘാടനം ചെയ്യും

സി വേണുഗോപാൽ എ ഐ

സി ജനറൽ സെക്രട്ട റിമാരായ മുകുൾ വാസ്നിക് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കർണ്ണാടകമന്ത്രി ഡി കെ ശിവ കുമാർ തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കും

ജമ്മു ശ്രീനഗർ എന്നിവിടങ്ങളിൽ ഒട്ടേറെ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

വിദ്യാർത്ഥികളുമായി മുഖാമുഖ പരി പാടിയും നിശ്ചയിച്ചിട്ടുണ്ട്

ഇതേത്തുടർന്ന് റാലി വെട്ടിച്ചുരുക്കി

പ്രധാനമന്ത്രിയുടെ സമ്മേളന വേദിയിലേക്ക് ജനങ്ങൾ കൂട്ടമായി എത്തിയതാണ് തിരക്കിന് കാരണമായത്

തടവിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ ഇന്ത്യൻ എംബസി നിരീ ക്ഷി ക്കു ന്നു ണ്ട് അമേ രി ക്കൻ ഗവൺമെന്റിൽനിന്ന് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി യതായും വിദേശകാര്യമന്ത്രാലയം ഡൽഹിയിൽ വെളിപ്പെ ടുത്തി

ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ച പാറ്റ്ന യിൽ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി റാലിയിൽ പങ്കെടുക്കും

പാർട്ടി മുഖ്യമന്ത്രിമാരും മഹാസഖ്യ ത്തിലെ മുതിർന്ന നേതാക്കളും പങ്കെടുക്കും

ന്യൂഡ്ൽഹിയിൽ ദേശീയ ഹെൽത്ത് മിഷന്റെ ആറാമത് സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി

സെക്രട്ടറിയേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നട ത്തുന്ന കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിത ബാധി തർ ഇന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് സങ്കട മാർച്ച് നടത്തും

അർഹരായ മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം നൽകണ മെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടറിയേറ്റിന് മുന്നിലെ സമരം ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വെല്ലിംഗ്ടണിൽ ആദ്യ മൂന്ന് മത്സ രങ്ങൾ ജയിച്ച് പരമ്പര സ്വന്തമാക്കിയ ഇന്ത്യ നാലാം മത്സര ത്തിൽ പരാജയപ്പെട്ടു മുൻ നായകൻ എം എസ് ധോണി ഇന്ത്യയ്ക്കുവേണ്ടി ഇന്ന് കളിക്കാനിറങ്ങും കൊല്ലത്ത് ദേശീയ ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ബി ഡിവിഷൻ വിജയികൾക്ക് ഡി ജി പി ലോകനാഥ് ബെഹ്റ ട്രോഫി സമ്മാനിച്ചു

റണ്ണർ അപ്പായ ഭ്യോപ്പാൽ ടീമിനും ചാമ്പൃൻഷിപ്പ് റഫറി അമ്പയർമാർ എന്നിവർക്കും പുരസ് കാരങ്ങൾ വിതരണം ചെയ്തു കൊച്ചിയിൽ പ്രോ വോളി ലീഗിന്റെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സിന് ജയം

ഇന്ന് വൈകിട്ട് ഏഴിന് കാലിക്കറ്റ് ഹീറോസ് ചെന്നൈ സ്പാർട്ടൻസിനെ നേരിടും രഞ്ജിട്രോഫി ക്രിക്കറ്റിൽ സൌരാഷ്ട്ര വിദർഭ ഫൈനൽ മത്സരം ഇന്ന് നാഗ്പൂരിൽ ആരംഭിക്കും രഞ്ജിയിൽ നില വിലെ ചാമ്പ്യന്മാരാണ് വിദർഭ മലപ്പുറത്ത് അഖിലേന്ത്യാ പൊലീസ് ഫുട്ബോൾ പ്രീ കാർട്ടറിൽ കേരളം ഇന്ന് ത്രിപുരയെ നേരിടും

ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാ ടനം ചെയ്യും ഒരാഴ്ചത്തെ പരിഷത്തിൽ മതപാഠശാല അയ്യപ്പ സമ്മേളനം ആചാര്യ അനുസ്മരണ സമ്മേളനം വനിതാ സമ്മേളനം തുടങ്ങിയ പരിപാടികൾ നടക്കും രാവിലെ ചെറുകോൽപ്പുഴയിൽ എത്തിച്ചേരുന്ന ജ്യോതിപ്ര യാണ യാത്രയെയും ഛായാചിത്ര ഘോഷയാത്രയെയും സ്വീകരിച്ച് വിദ്യാധിരാജ നഗറിലേക്ക് ആനയിക്കും സംസ്ഥാന ഭവന നിർമാണ ബോർഡിന്റെ വായ്പ ഉപയോഗിച്ച് ഇതുവരെ ഏഴു ലക്ഷം വീടുകൾ സംസ്ഥാനത്തു നിർമിച്ചതായി മന്ത്രി ഇ ചന്ദ്രശേഖരൻ കൊല്ലത്ത് പറഞ്ഞു ഭവന നിർമാണ വായ്പാ കുടിശിക നിവാരണ് അദാലത്ത് ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ കിട്ടുന്ന തിനേക്കാൾ ആനുകൂല്യങ്ങൾ അദാലത്തിൽ ലഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു

എം പി ലയന സമ്മേളനം ഇന്ന് വൈകിട്ട് കൊല്ലത്ത് നടക്കും

ലയനത്തോടെ സി

എമ്മിന് ഒരു എം

ചവറ യിലെ എൻ വിജയൻ പിള്ളയാണ് നിലവിൽ സി

പി യുടെ എം

മെഡിക്കൽ എഞ്ചിനീയറിം ഗ് ആർക്കിടെക്ചർ ഫാർമസി ഡെന്റൽ ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി അഗ്രികൾച്ചർ ഫോറസ്ട്രി വെറ്റ റിനറി ഫിഷറീസ് കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണം

ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാ നമായി

ഗവൺമെന്റ് അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചു ക്ഷേത്രഭൂമിയും ആവാസവ്യവസ്ഥയും സംരക്ഷിക്കും നിര വധി കുരങ്ങുകളുടെ ആവാസകേന്ദ്രം കൂടിയാണ് നിത്യഹ രിത വനത്തിനോട് സമാനമായ വള്ളിക്കാട്ടുകാവ് മലപ്പുറം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മലപ്പുറം ഫെസ്റ്റിന് ഇന്ന് തുടക്കമാകും വൈകിട്ട് മന്ത്രി ഡോ

ടി ജലീൽ മേള ഉദ്ഘാടനം ചെയ്യും

ബുധനാഴ്ച എൻഫോ ഴ്സ്മെന്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജ രാകണമെന്ന് വാദ്രയ്ക്ക് നിർദ്ദേശം നൽകി